ത കോവിഡ് നിരീക്ഷണത്തിന് ജനമൈത്രി സന്നദ്ധപ്രവർത്തകരെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വാർത്തകൾ വിശദമായി രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരും

കോവിഡ് വ്യാപനം രൂക്ഷമായ കേരളവും മഹാരാഷ്ട്രയും തമിഴ്നാടും ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളിലെ സാഹചര്യം ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറിയ്ക്ക് നൽകിയിട്ടുണ്ട് കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായും വാക്സിൻ നിർമ്മാതാക്കൾ ഔഷധ നിർമ്മാണ മേഖലയിലെ കമ്പനികൾ എന്നിവരടക്കം വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തിവരികയാണ് രംഭ വീടുകളിൽ കൊവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ട പുതുക്കിയ മാർഗനിർദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കി നേരിയ രോഗലക്ഷണം കാണിക്കുന്നവരും രോഗലക്ഷണമില്ലാത്തവരുമായ രോഗികൾ വീട്ടിൽ തന്നെ കഴിയാനാണ് പുതിയ നിർദേശം ഇത് ആരോഗ്യ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തണം

തൊണ്ടവേദനയും ചുമയും ഉൾപ്പെടെ നേരിയ ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികൾ വീട്ടുനിരീക്ഷണത്തിൽ കഴിയണം കൂടുതൽ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെ കൊവിഡ് കെയർ സെന്ററുകളിൽ പ്രവേശിപ്പിക്കണം വീട്ടുനിരീക്ഷണത്തിൽ കഴിയുന്നവർ ഡോക്ടറുമായോ ആരോഗ്യപ്രവർത്തകരുമായോ ആശയവിനിമയം നടത്തണമെന്നും പുതുക്കിയ മാർഗനിർദേശത്തിൽ പറയുന്നു

നിർമാതാക്കളിൽ നിന്ന് നേരിട്ട് വാങ്ങണമെന്ന്കേന്ദ്രം നിർദേശം നൽകി

സംസ്ഥാനത്തെ രണ്ടാം ഡോസ് വാക്സീൻ എടുക്കേണ്ട എല്ലാവർക്കും മുൻഗണനയനുസരിച്ച് കുത്തിവെപ്പ് നൽകും വാക്സീനേഷൻ സെന്ററുകളിൽ സെഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഡോസ് എടുക്കുന്നവർക്ക് മുൻഗണന നൽകുന്ന രീതിയിലായിരിക്കും ഷെഡ്യൂൾ ക്രമീകരണം

കൈയ്യിൽ ബാഡ്ജ് ധരിച്ച ഇവരെ ബീറ്റ് പട്രോൾ ക്വാറന്റൈൻ പരിശോധന തുടങ്ങിയ ജോലികൾക്ക് പ്രയോജനപ്പെടുത്തും

കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡസ്കിൽ നിന്ന് നിഷിതകുമാരി ഓഡിയോ രും മെയ് നാലുമുതൽ ഒൻപത് വരെ സംസ്ഥാനത്ത് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും വാരാന്ത്യങ്ങളിൽ ഏർപ്പെടുത്തിയിരി ക്കുന്ന നിയന്ത്രണത്തിന് സമാനമായ ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാകുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അംഗീകരിച്ച പരിശോധനാ കിറ്റുകൾ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭ്യമായ സാഹചര്യം വിലയിരുത്തിയാണ് നിരക്ക് കുറച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി ഗവൺമെന്റ് ആശുപത്രികളിൽ എല്ലാ കൊവിഡ് പരിശോധനകളും സൌജന്യമായാണ് നടത്തുന്നതെന്നും മന്ത്രി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു

എറണാകുളം ലിറ്റിൽ ഫ്ളവർ ആശുപത്രിയിലെ അനസ്തീഷോളജിസ്റ്റ് ഡോ ടി വി ജോയ് കോട്ടയം മെഡിക്കൽ കോളജിലെ ബ്ലഡ് ബേങ്ക് ടെക്നീഷ്യൻ ജി സോമരാജൻ എന്നിവരുടെ കുടുംബത്തിനാണ് ഇൻഷ്വറൻസ് അനുവദിച്ചത്

രാജ്യത്തെ പൊതുമേഖല ആരോഗ്യ സംവിധാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ കണക്കിലെടുത്താണ് നടപടിയെന്ന് ഭാരത് ബയോടെക് അറിയിച്ചു

രുര സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധ രുര കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം ഘട്ടം മുൻനിർത്തി മെയ് മൂന്നു മുതൽ ഏഴു വരെ ട്രഷറികളിൽ പെൻഷൻ വിതരണത്തിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി പെൻഷൻ അക്കൌണ്ട് നമ്പറിലെ അവസാന അക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ദിവസവും പെൻഷൻ വിതരണം രുഭ കോവിഡ് പശ്ചാത്തലത്തിൽ ചില തദ്ദേശ സ്ഥാപനങ്ങൾ സ്വയം ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് നിയമപരമായി നിലനിൽക്കില്ലെന്നും കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു

രും കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ മത വിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങളിൽ കർശന നിയന്ത്രണം ആവശ്യമാണെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു ഗവൺമെന്റ് നിർദേശിക്കുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ജില്ല പൂർണമായ അടച്ചിടലിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് മത നേതാക്കളുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ ജില്ലാ കലക്ടർ അറിയിച്ചു രുര കോവിഡ് മാനദ്ണ്ഡം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കൊല്ലം ചാത്തന്നൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജില്ലാ കലക്ടർ അടപ്പിച്ചു സന്ദർശക രജിസ്റ്റർ സൂക്ഷിക്കാതെ കോവിഡ് മാർഗ നിർദേശങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചതിനാണ് നടപടി രും ഇടുക്കി ജില്ലയിൽ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ ജീവനക്കാരും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പരിശോധനാ വേളയിൽ ഹാജരാക്കണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു

എം

ജെ

ജെ

അസമിലും പുതുച്ചേരിയിലും എൻ

എ സഖ്യത്തിനും തമിഴ്നാട്ടിൽ ഡി

കേരളത്തിൽ എൽ ഡി എഫിന് ഭരണത്തുടർച്ചയാണ് എല്ലാ എക്സിറ്റ്പോളുകളും സൂചിപ്പിക്കുന്നത്

ഡി എ യ്ക്ക് രണ്ടുവരെ സീറ്റുമാണ് എക്സിറ്റ് പോളുകളിലൂടെ കണ്ടെത്തിയത് രുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജന ഹിതമറിയാൻ ഇനി രണ്ടു ദിവസം മാത്രം

ആദ്യം പോസ്റ്റൽ വോട്ടുകളും എട്ടരയോടെ വോട്ടിങ് യന്ത്രങ്ങളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും കോവിഡ് സാഹചര്യത്തിൽ കൂടുതൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും സൌകര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയതായി സംസ്ഥാന മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ അറിയിച്ചു മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കും ദേ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കി വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് അനുസരിച്ച് കമ്മീഷൻ വെബ്സൈറ്റിൽ ഫലം ലഭ്യമാക്കും

എൽ ക്രിക്കറ്റിൽ അഹമ്മദാബാദിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു നേരത്തെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ അഹമ്മദാബാദിൽ നേരിടും